സംരംഭത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കർഷക പ്രതിനിധികള്ുമായി സർക്കാർ ഇന്ന് പത്താം വട്ട ചർച്ച ന് നടത്തും

പ്രസിഡന്റായി കമല ഹാരിസും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

എളുപ്പത്തിൽ സംഭരിക്കുവാൻ കഴിയുന്ന ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക വാക്സിനുകളുടെ ദശലക്ഷക്കണക്കിന് ഡോസുകളാണ് രാജ്യത്തു നിന്നും നിരവധി വികസ്വര രാജൃങ്ങളിലേക്ക് കയറ്റി അയയ്ക്കാൻ പദ്ധതിയിടുന്നത് ആരോഗൃ രക്ഷാ ആവശൃങ്ങൾ നിറവേറ്റുന്നതിൽ ദീർഘകാലമായി മികവ് പുലർത്തുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയ്ക്ക് ഈ സംരംഭത്തിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അയൽരാജൃങ്ങളിൽ നിന്നും പ്രധാന പങ്കാളി രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾക്കായുള്ള നിരവധി അഭ്യർത്ഥനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പ്ലിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഭൂട്ടാൻ മാലിദ്വീപ് ബംഗ്ലാദ്ദൂർ ് നേപ്പാൾ മ്യാൻമാർ സീഷെൽസ് എന്നിവിടങ്ങളിലേക്ക് പ്യാക്ക്സിൻ എത്തിക്കുന്ന യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും ്വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പ്പൂർത്തീയായതിന് ശേഷം ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ മൌറീഷ്യ്സ് എന്നിവിടങ്ങളിലേക്കും ഇന്ത്യ വാക്സിൻ എത്തിച്ചു നൽകും

പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിനാണ് ഇന്ത്യയുടെ സംഭാവനയായി ഭൂട്ടാനിൽ എത്തുന്നത് കോവിഡിനെ തുടർന്നുള്ള അടച്ചിടലിനിടെയും ഭൂട്ടാനുമായി അവശ്യ സാധനങ്ങളും സേവനങ്ങളും പങ്കിടുന്ന പ്രത്യേക ബന്ധമാണ് ഇന്തൃ പിന്തുടരുന്നത് പാരസെറ്റമോൾ ഹൈഡ്രോക്ലോറിക്കിൻ പി

വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഗ്രാമ വികസന മന്ത്രി നരേന്ദ്രസിങ് തോമറും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥും പങ്കെടുക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെയായിരുന്നു ചർച്ചയ്ക്ക് നിശ്ചയിച്ചിരുന്ന ദിവസം കർഷകരുടെ ആവശ്യങ്ങളടങ്ങിയ കരട് സമർപ്പിക്കാൻ അനൌപചാരിക സംഘം രൂപീകരിക്കാൻ കർഷക സംഘടനകളോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിങ് തോമർ അറിയിച്ചു

കോവിഡ് വാക്സിൻ വിദേശ യാത്രകൾ കോവിഡ് പ്രതിസന്ധിക്കിടയിൽ ഡിജിറ്റൽ മേഖലയിലെ മുന്നേറ്റം എന്നിവ സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു

രണ്ടാം ഘട്ട സമ്മേളനം മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും സഭാ സമ്മേളനമെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റിന്റെ ഇരു സഭകളെയും സംയുക്തമായി അഭിസംബോധന ചെയ്യും അടുത്ത മാസം ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് അവതരണം

ഐ

ഇ അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്കിലും കഴിഞ്ഞ അക്കാദമിക വർഷത്തിലും എടുത്ത തീരുമാനപ്രകാര്മാണ് നടപടി

ഐ ടി ഐ ഐ ടി എസ്

എ മറ്റു സി

ടി ഐ കൾ ഉൾപ്പെടെ വിവിധ പ്രവേശന നടപടികൾക്ക് ഇത് ബാധകമായിരിക്കും

ഇ

നൂതനാശയ രൂപീകരണത്തിന് നൽകുന്ന പിന്തുണ അനുസരിച്ച് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ ഭരണകൂടങ്ങളെ തരംതിരിക്കുന്ന സംവിധാനമാണ് ഇന്ത്യ ഇന്നവേഷൻ സൂചിക

മിക്ക സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ വാക്സിൻ യജ്ഞത്തിന് അനുകൂലമായാണ് പ്രതികരിക്കുന്നത്

ഇതുവരെ ആർക്കും പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സംസ്ഥാന ആരോഗൃ വകുപ്പ് അറിയിച്ചു

ഈ മാസം നാലിന് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോയ യാത്രക്കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്

അമേരിക്കയിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ദക്ഷിണേഷ്യൻ പശ്ചാത്തലമുള്ള വൃക്തി എന്നീ നിലകളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന കമല ഹാരിസ് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്

ഇതിന് മുന്നോടിയായി പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കാൻ ജോ ബൈഡൻ റിപ്പബ്ലിക്ട് ഉഡ്മോക്രാറ്റിക് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്ട്

സി സി ഐ പ്രഖ്യാപ്പിച്ചു

സി സി

വിരാട് കോഹ്ലി ടീമിന്റെ ഭാഗമാകും

അടുത്ത മാസം അഞ്ചിനാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ആദ്യ രണ്ട് മത്സരങ്ങൾ ചെന്നൈയിൽ നടക്കും മൂന്നാമത്തെയും നാലാമത്തെയും മത്സരങ്ങൾ അഹമ്മദാബാദിലാണ്

ഭാവി പരമ്പരകളിലും വലിയ വിജയങ്ങൾ നേടാൻ ഇന്ത്യയ്ക്ക് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു

സി യെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം മഡ്ഗാവിൽ ഇന്നലെ ഹൈദരബാദ് എഫ്

ഇരു ഭാഗത്തും റാഫേൽ പ്രിമ്ാനം ഉൾപ്പെടുന്നു എന്ന സവിശേഷതയും പരിശീല്നത്തിനുണ്ട്

റുവാണ്ടയിലെയും ബറൂണ്ടിയിലെയും രണ്ട് സമാധാന ദൌത്യസേവകരാണ് കൊല ചെയ്യപ്പെട്ടത്